വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി ഏഴിന് ന് പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും

കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതി കേന്ദ്രം വിലയിരുത്തി

ഒറ്റ ഘട്ടമായി നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു മലപ്പുറം കന്യാകുമാരി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും പൂർത്തിയായി കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ ജാഗ്രതാ ക്രമീകരണങ്ങളോടെയായിരുന്നു തെരഞ്ഞെടുപ്പ്

വീടുകളിൽ ചെന്ന് രേഖ്പ്പെടുത്തിയ മൂന്നര ലക്ഷത്തിലേറെ തപാൽവോട്ടുകളും പോളിങ് ഉദ്യോഗസ്ഥരുടെ വോട്ടുകളും കൂടി ഉൾപ്പെടുത്തിയുള്ള കണ്ണുക്കുകൂടി വരുമ്പോൾ വോട്ടെടുപ്പ് നിരക്ക് ഇനിയും ഉയരാനാണ് സാ്ധ്യത

രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരത്ത് റെക്കോഡ് പോളിങ് നടന്നു

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പശ്ചിമ ബംഗാളിലും അസമിലും മികച്ച പോളിങ് രേഖപ്പെടുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാമനിർദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ശനിയാഴ്ചയോടെ പശ്ചിമബംഗാളിലെ അഞ്ചാംഘട്ടത്തിലെ അന്തിമ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ വെർച്ചൽ രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ജെ പി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

ജെ

ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഗോതമ്പ് സംഭരിച്ചത്

അതിവേഗം വളരുന്ന സമ്പദ്വൃവസ്ഥ എന്ന പേര് ഇന്തൃ വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണെന്നും ഐ

കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക വളർച്ച എട്ട് ശതമാനം കണ്ട് ചുരുങ്ങുമെന്ന് പ്രവചിച്ച ഐ എം

മഹാരാഷ്ട്രയിലും പഞ്ചാ്ബിലും മരണനിരക്ക് ക്രമാതീതമായി ഉയർന്ന രീതിയിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രക്ഷോഭങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്കായുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കായി ഒത്തുചേരുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ അവഗണിച്ചതാണ് കോവിഡ് വ്യാപനം അധികരിക്കാൻ ഇടയാക്കിയതെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ചൂണ്ടിക്കാണിച്ചു രോഗവ്യാപനം തടയാൻ എല്ലാ കേന്ദ്ര സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതിനിടെ രാജ്യത്ത് എട്ടേകാൽ കോടി കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയതായി ഡോ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ കത്തിലാണ് ഐ

പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് പ്രതിരോധ മരുന്ന് സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് കോവിഡിന്റെ രണ്ടം തരംഗം ആശങ്കപ്പെടുത്തുന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണെന്നും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിന് നടപടി ആവശ്യമാണെന്നും ഐ

ദവായ് ഭി കഡായ് ഭി മരുന്ന് മാത്രമല്ല ജാഗ്രതയും വേണം എന്ന സന്ദേശം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് ഇത് ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും മന്ത്രാലയം ആവർത്തിച്ചു

അന്താരാഷ്ട്ര ഏകോപനം വർദ്ധിപ്പിക്കു്ണതിലൂടെയും നയപരമായ പിന്തുണയിലൂടെയും കോവിഡ് മഹ്റാമാരിയെ മികച്ച രീതിയിൽ തരണം ചെയ്യാമെന്ന് ധനമന്ത്രി ്പറഞ്ഞു

ഐ ഗവർണർ ശക്തികാന്ത ദാസുമായി ആദ്ധ്യക്ഷ്യം പങ്കിട്ട ബ്രിക്സ് ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ

ദിനാചരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ

ലോകാരോഗ്യ സംഘടനയുടെ മുൻഗണനാ മേഖലകളെ ഉയർത്തിക്കാട്ടുന്നതിനും ഒരു പ്രത്യേക ആരോഗ്യവിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ലോകാരോഗൃ ദിനം ആചരിക്കുന്നത് എല്ലാവർക്കും മികച്ചതും ആരോഗ്യകരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗൃ ദിന പ്രമേയം കോവിഡ് മഹാമാരി സമീപകാല ആരോഗ്യ നേട്ടങ്ങൾക്ക് കുറവ് വരുത്തിയതായും കൂടുതൽ വൃക്തികളെ ദാരിദ്രൃത്തിലേക്കും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചതായും ലോകാരോഗൃ സംഘടന വൃക്തമാക്കി

ബി

മുംബൈ മുൻ പോലീസ് മേധാവി പരംബീർ സിങ്ങിന്റെ ആരോപണത്തെ തുടർന്ന് ബോംബെ ഹൈക്കോടത്തിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി

ആണവ കരാർ പുനസ്ഥാപിക്കുന്നതിന് യു എസ് ഇറാൻ ഉന്നതതല സംഘവുമായി റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൺ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ദ്ധർ ചർച്ച ആരംഭിച്ചു